പശ്ചിമ ബംഗാളിലും അസമിലും രണ്ടാം ഘട്ട നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി

തൃണമൂൽ കോൺഗ്രസും ബിജെപിയും എല്ലാ മണ്ഡലങ്ങളിലും സ്ഥാനാർഥികളെ നിർത്തിയിട്ടുണ്ട്

പരസ്യ പ്രചാരണത്തിന്റെ അവസാനദിനം കേന്ദ്ര ആഭൃന്തരമന്ത്രി അമിത് ഷാ നന്ദിഗ്രാമിൽ റോഡ് ഷോ നടത്തി കാലിനു പരിക്കേറ്റു ചികിത്സയിലുള്ള മുഖ്യമന്ത്രി മമത വീൽചെയറിൽ റാലി നടത്തി

പോളിംഗിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ തെരഞ്ഞെടുപ്പിനുള്ള നിയമസഭാ തെരെഞ്ഞെടുപ്പിൽ അണ്ണാ ഡി എം കെ കോർഡിനേറ്ററും ഉപമുഖ്യമന്ത്രിയുമായ ഒ പനീർശെൽവവും മുൻ അണ്ണാ ഡി എം

മുൻ ഏറ്റുമുട്ടൽ സഹപ്രവർത്തകരായ ഇരുവരും തമ്മിൽ തീപാറുന്ന പോരാട്ടമാണ് നടക്കുന്നത്

രാഷ്ട്രീയ പാർട്ടികൾക്ക് പണം നേരിട്ട് സംഭാവന നൽകുന്നതിന് പൂക്രമുള്ള സംവിധാനമാണ് തെരഞ്ഞെടുപ്പ് ബോണ്ടുകൾ രാഷ്ട്രീയ പ്പാർട്ടികൾ ശേഖരിക്കുന്ന പണം സംബന്ധിച്ച് സുതാര്യത് ഉറപ്പുവരുത്തുന്നതിനാണ് ഈ സംവിധാനം

ഇരട്ടവോട്ട് തടയാൻ തെരെഞ്ഞെടുപ്പ് കമ്മീഷൻ സമർപ്പിച്ച മാർഗ്ഗരേഖ ഹൈക്കോടതി അംഗീകരിച്ചു ഒന്നിലധികം സ്ഥലങ്ങളിൽ വോട്ടുളളവർ വോട്ട് ചെയ്യുന്ന ബൂത്തിൽ സത്യവാങ്മൂലം സമർപ്പിക്കണം ഒരാൾ ഒരു ബൂത്തിൽ മാത്രമേ വോട്ട് ചെയ്യുന്നുളളൂ എന്ന് ഉറപ്പാക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു

മലപ്പുറം ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പും അന്നു നടക്കും

എൻഡിഎ്യുടെ പ്രചാരണത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്ര മോദി മറ്റന്നാൾ പത്തനംതിട്ടയും തിരുവനന്തപുരവും സന്ദർശിക്കും

ജെ

ദേശീയ അദ്ധ്യക്ഷൻ ജെ

എം പോളിറ്റ് ബ്യൂറോ അംഗങ്ങളായ പ്രകാശ് കാരാട്ടും വൃന്ദ കാരാട്ടും തൃശ്ശൂരിൽ ഇന്ന് പ്രചാരണം നടത്തി കേരളത്തിലുളള പ്രിയങ്ക ഗാന്ധി തൃശ്ശൂരിൽ വിവിധ പരിപാടികളിൽ പങ്കെടുത്തു

മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് സ്വന്തം മണ്ഡലമായ ധർമ്മടത്താണ് പ്രചാരണം നടത്തിയത് ന്യൂസ്ഡെസ്ക് ആകാശവാണി

സ്പ്രകാര്യ ഉപഭോഗത്തിലും നിക്ഷേപ വളർച്ചയിലും ഉണ്ടായ ശ്രക്തമായ തിരിച്ചുവരവാണ് വളർച്ചയ്ക്ക് കാരണമെന്ന് ല്യോക്കബാങ്ക് റിപ്പോർട്ടിൽ പറയുന്നു

ആശുപത്രികൾ മെഡിക്കൽ ഉപകരണങ്ങൾ ആരോഗൃ ഇൻഷുറൻസ് ടെലിമെഡിസിൻ ഗാർഹിക ആരോഗ്യ സംരക്ഷണം എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു

കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രി പ്രകാശ് ജവ്ദേക്കർ ഡൽഹിയിൽ മാധ്യമങ്ങളെ അറിയിച്ചതാണ് ഇക്കാരൃം

കോവിഡ് മഹാമാരിയെ സധൈര്യം നേരിട്ട് സാമ്പത്തിക മേഖലയ്ക്ക് കൈത്താങ്ങായ കർഷകരെ കോവിഡ് പോരാളികൾ എന്ന് ശ്രീ വെങ്കയ്യ നായിഡു വിശേഷിപ്പിച്ചു മുതിർന്ന ഐ

എസ് ഉദ്യോഗസ്ഥൻ മോഹൻ കാണ്ഡക്ക് ശ്രീഴുതിയ ഇന്ത്യയിലെ കാർഷികരംഗം സമകാലിക വെല്ലുപ്പിളികൾ എന്ന പുസ്തകം പ്രകാശനം ചെയ്ത് സംസാരിക്കുകൂയായിരുന്നു ഉപരാഷ്ട്രപതി

സൈനിക പിന്മാറ്റം ആരംഭിച്ചതോടെ മേഖല മെല്ലെ സമാധാനത്തിലേക്ക് മടങ്ങുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു

കോവിൻ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്ത ശേഷം തിരിച്ചറിയൽ രേഖയുമായി അടുത്തുള്ള വാക്സിനേഷൻ കേന്ദ്രങ്ങളിൽ എത്തണം മൂന്ന് മണിക്ക് ശേഷം നേരിട്ടെത്തി രജിസ്റ്റർ ചെയ്തും വാക്സിൻ സ്വീകരിക്കാവുന്നതാണ് ഓൺലൈനായി രജിസ്റ്റർ ചെയ്തവർക്ക് പിന്നീട് രജിസ്ട്രേഷൻ ആവശ്യമില്ല

രാജ്യത്ത് പുതിയതായി രോഗം ബാധിക്കുന്നവരുടെ വർദ്ധിച്ചുവരികയാണ്

കാര്യങ്ങൾ മെച്ചപ്പെടുന്നില്പെങ്കിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെട്ടുത്തേണ്ടിവരുമെന്ന് മുംബൈ മുൻസിപ്പൽ കമ്മീഷണർ അറിയിച്ചു

മറ്റന്നാളാണ് ദുഃഖവെള്ളി

കണക്കിലെടുത്ത് ത്രെഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ശബ്ദ കോലാഹലങ്ങൾക്ക് അവധി നൽകി ഭവന സന്ദർശനം നടത്താനാണ് മുന്നണികൾ ലക്ഷ്യമിടുന്നത്

കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് മറ്റുള്ള എല്ലാ ടീമുകളോടും തിരികെ പോകാൻ അധികൃതർ നിർദ്ദേശം നൽകി